പട്ടികവർഗ്ഗങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ ചെറുക്കുന്ന ബില്ലിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം ഐ

മികച്ച പാർലമെന്റ് അംഗങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തശേഷം പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ സംസാരിക്കുയായിരുന്നു പ്രധാനമന്ത്രി പാർല്ലമെന്റ് നടപടികൾ മുടങ്ങാതെ നടക്കേണ്ടതിന്റെ ആവശ്യകൃതിയിക്കുറിച്ച് പ്രധാനമന്ത്രി സൂചിപ്പിച്ചു രാജ്യത്തെ പാവപ്പെട്ടവർക്കു് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടിയാണ് പാർലമെന്റ് അംഗങ്ങൾ ശബ്ദമുയർത്തേണ്ടത് സാധാര്യങ്ക്കാരന്റെ വിഷയങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിച്ചാൽ മാത്രമേ ഗവൺമെന്റിന് അവർക്കുവേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയൂവെന്നും അദ്ദേഹം പറഞ്ഞു

പിമാർക്ക് സംസാരിക്കാനായില്ലെങ്കിൽ അത് രാജ്യത്തിന്റെ നഷ്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു

പിമാർ ഏതെങ്കിലും പാർട്ടിയുടെ മാത്രം പ്രതിനിധിയല്ലെന്നും ഭരണഘടനാമൂലൃങ്ങളുടെ സംരക്ഷകനാണെന്നും ചടങ്ങിൽ സംബന്ധിച്ച രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു സാധാരണക്കാർ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഉറ്റുനോക്കുന്നത് അവരുടെ പ്രതിനിധികളെയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു സംവാദങ്ങളാണ് എം പിമാർ ഉയർത്തേണ്ടതെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പറഞ്ഞു രാജ്യത്തിന്റെ ജനാധിപതൃ സംവിധാനം മറ്റുള്ളവർക്ക് പ്രചോദനമാണെന്ന് ലോക്സഭാ സ്പീക്കർ സുമിത്രാ മഹാജൻ പറഞ്ഞു നജ്മാ ഹെപ്തുള്ള ഹുക്കും ദേവ് നാരായണൻ ദേവ് ഗുലാം നബി ആസാദ് ദിനേഷ് ത്രിവേദി ഭർതൃഹരി മഹ്തബ് എന്നിവരാണ് മികച്ച പാർലമെന്റംഗങ്ങൾക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയത്

ഇന്നലെ മാധ്യമങ്ങളോട് ന്യൂഡൽഹിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭേദഗതി ബിൽ നടപ്പു പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ പാസ്സാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ദളിതരുടെ ക്ഷേമം ലക്ഷ്യമാക്കിയാണ് കേന്ദ്രഗവൺമെന്റ് പ്രവർത്തിക്കുന്നതെന്നും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

നടപടി വായ്പാ പലിശ നിരക്കിൽ വർദ്ധനവിന് വഴിവയ്ക്കുമെന്ന് ആശങ്ക

റിസർവ് ബാങ്കിൽ നിന്ന് വാണിജ്യബാങ്കുകൾ വാങ്ങുന്ന അടിന്തര വായ്പയുടെ പലിശയായ എം

കരുതൽ ധന അനുപാതട്ട് പൂശ്തമാനത്തിലും ഗവൺമെന്റ് കടപ്പത്രങ്ങളിലും മറ്റും വാണിജ്യ ബ്രിങ്കുകൾ നിർബന്ധമായി നടത്തേണ്ട നിക്ഷേപത്തിന്റെ നീര്ക്കാട്യ എസ്

ന്യാ്ണ്യ്പ്പെരുപ്പം നിയന്ത്രണാതീതമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തുടർച്ച്ചയാ്യ രണ്ടാംതവണയും റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് ഉയർത്തിയത്

ജൂണിൽ നിരക്ക് വർദ്ധന ഉറപ്പായതിനാൽ റിസർവ് ബാങ്കിന്റെ പ്രഖ്യാപനത്തിന് മുമ്പേ എസ് ബി

ഡി

ഐ ബാങ്കിനെ എൽ

സി ഏറ്റെടുക്കുന്ന നടപടിക്ക് കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി ബാങ്കിൽ കേന്ദ്രഗവൺമെന്റിന്റെ മാനേജ്മെന്റ് അധികാരം ഒഴിയുകയും ഓഹരിവിഹിതം അൻപത് ശതമാനത്തിൽ താഴെയായി കുറയ്ക്കുകയും ചെയ്യും

ഐ

ബി ഐ ബാങ്കിനും ഏറ്റെടുക്കൽ ഒരുപോലെ പ്രയോജനം ചെയ്യുമെന്ന് കേന്ദ്രഗവൺമെന്റ് വ്യക്തമാക്കി മ്യൂചൽ ഫണ്ട് ഭവനവായ്പാ മേഖലകളിൽ എൽ ഐ സി യ്ക്ക് കൂടുതൽ പ്രവർത്തനശേഷി നേടാൻ ഇത് വഴിയൊരുക്കും

ചെയർപേഴ്സണും മൂന്ന് അംഗങ്ങളും അടങ്ങിയതാണ് ബോർഡ് കാർഷിക മേഖലയിലെ നിയമന ന്റട്ടിപടികൾക്ക് സഹായം നൽകുകയാണ് ബോർഡിന്റെ ചുമത്ല

ടി യിൽ ഇളവു നൽകുന്ന സേവാഭോജ് യോജന പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റ് തുടക്കമിട്ടു ആരാധനാലയങ്ങളും ജീവകാരുണ്യ സ്ഥാപനങ്ങളും നടത്തുന്ന അന്നദാന പ്രസാദ വിതരണ പദ്ധതികൾക്കാണ് ഇളവ് നൽകുന്നത്

ഈ സ്ഥാപനങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാനുള്ള സാമ്പത്തിക ബാധ്യത കുറയ്ക്കുകയാണ് ലക്ഷ്യം

അഞ്ച് ജില്ലകൾ പ്രളയക്കെടുതിയിലാണ്

വാഹന ഗതാഗതം സ്തംഭിച്ചിരിക്കുകയാണ്

തെരഞ്ഞെടുപ്പിൽ ഭരണപക്ഷം കൃത്രിമം കാട്ടി എന്നാരോപിച്ച് പ്രതിപക്ഷം നടത്തിയ പ്രക്ഷോഭം അക്രമാസക്തമാകുകയായിരുന്നു ഇതേത്തുടർന്ന് സൈന്യം നടത്തിയ വെടിവയ്പ്പിലാണ് മൂന്നു പേർ കൊല്ലപ്പെടുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലം ഇന്നലെ പ്രഖ്യാപിച്ചപ്പോൾ ഭരണപക്ഷമായ സാനു പി എഫിനാണ് മേൽക്കൈ ദീർഘകാലമായി ഭരണം കയ്യാളിയിരുന്ന റോബർട്ട് മുഗാബെയെ സ്ഥാനഭ്രഷ്ടനാക്കിയശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പായിരുന്നു ഇത് പ്രതിപക്ഷ സഖ്യകക്ഷികളായ എം ഡി സി അവരുടെ സ്ഥാനാർത്ഥി നെൽസൺ ഷാമിസെയാണ് വിജയിച്ചത് എന്ന് അവകാശപ്പെടുന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇനിയും പ്രഖ്യാപിക്കാനിരിക്കുന്ന തേയുള്ളൂ ജനങ്ങൾ അക്രമങ്ങളിൽ നിന്ന് ഒഴിയണമെന്നും രാജ്യത്ത് സമാധാനം പരിപാലിക്കണമെന്നും നിലവിലെ പ്രസിഡന്റ് എമേഴ്സൺ മൻഗാവ അഭ്യർത്ഥിച്ചു രാജ്യത്ത് കലാപം പൊട്ടിപ്പുറപ്പെടുന്നതിനെതിരെ രാഷ്ട്രീയനേതാക്കളും ജനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അഭ്യർത്ഥിച്ചു

ഭീകരവാദത്തിൽ നിന്ന് പാകിസ്ഥാൻ മുക്തമാകണം അതിനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ ആരംഭിക്കണം അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനങ്ങൾ തടയാൻ ഇന്ത്യ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും വി

ഇന്തോ ജർമ്മൻ ഉഭയകക്ഷി വികസനത്തിന്റെ ഭാഗമായാണ് കരാറിൽ ഒപ്പു വച്ചത് ധനകാര്യമന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി സമീർ കുമാർ ഖാരെയും ഇന്ത്യയിലെ ജർമ്മൻ അംബാസിഡർ മാർട്ടിൻ ലൂവിയുമാണ് ന്യൂഡൽഹിയിൽ കരാറിൽ ഒപ്പുവച്ചത്

ഇന്നലെ ന്യൂഡെൽഹിയിലാണ് ഇരു രാജൃങ്ങളും പരസ്പര സഹകരണ ചർച്ചകൾക്ക് തുടക്കമായത്

കേണൽ ജനറൽ സതീഷ് ദുവ നയിക്കുന്ന ഇന്ത്യൻ സ്ക്ലവും ലെഫ്റ്റ്നന്റ് ജനറൽ ബ്രയാൻ ഫെന്റൺ നയിക്കുന്ന് അമേരിക്കൻ സംഘവുമാണ് ചർച്ച നയിക്കുന്നത് അടുത്തമാസം രാജ്യരക്ഷാ മിന്ത്രിനിർമ്മലാ സീതാരാമനും വിദേശകാരൃമന്ത്രി സുഷ്മു സ്വരാജും അമേരിക്കൻ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും

എ

ഇവരെ സഹായിക്കുവാനായി ഇന്ത്യൻ കോൺസുലേറ്റ് മൂന്ന് ഉദ്യോഗസ്ഥരെ ദുബായ് ഇമിഗ്രേഷൻ ഓഫീസിൽ നിയമിച്ചിട്ടുള്ളതായി ഗവൺമെന്റ് അറിയിച്ചു നാട്ടിലേക്കു മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് ഇവരുടെ സേവനം പ്രയോജനപ്പെടുത്താമെന്ന് കോൺസിൽ ജനറൽ വിപുൽ അറിയിച്ചു അബുദാബിയിലും ദുബായിലും അനധികൃതമായി താമസിക്കുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് നിയമസഹായങ്ങൾ എത്തിക്കുവാനാണ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ പരിശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു

ഇ യിലെ അധിവസിക്കൽ നിയമം ലംഘിച്ചിട്ടുള്ള വിദേശികൾക്ക് മൂന്നു മാസത്തെ ഇളവാണ് യു

ഇ ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്നത് ഈ കാലയളവിനുള്ളിൽ അധിവാസം പിഴയൊടുക്കി നിയമവിധേയമാക്കുകയോ അല്ലാത്തപക്ഷം രാജ്യം വിട്ടുപോകുകയോ വേണമെന്നാണ് അധികൃതർ വൃക്തമാക്കിയിരി ക്കുന്നത്

ഇന്ത്യൻ സ്പിന്നർ രവിചന്ദ്രൻ അശ്വിൻ നാല് വിക്കറ്റ് നേടി

അഞ്ച് മൽസര പരമ്പരകളിലെ ആദ്യ മൽസരമാണിത്

സിന്ധു കിഡംബി ശ്രീകാന്ത് സായ് പ്രണീത് എന്നിവർ പ്രീ ക്വാർട്ടറിലെത്തി വനിത സിംഗിൾസിൽ പി

പുരുഷ സിംഗിൾസിൽ കിഡംബി ശ്രീകാന്ത് മലേഷ്യയുടെ ല്യൂഡാരനെ നേരിടും

ലോകകപ്പ് ചരിത്രത്തിലെ രണ്ടാം സെമിഫൈനലാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഇറ്റലിയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ക്വാർട്ടറിൽ പ്രവേശിച്ചത്